കൂടിയതും ആയിരിക്കണമെന്ന് വിജിലൻസ് അഴിമതി വിരുദ്ധ ദേശീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

കഴിഞ്ഞ മാസം പുറത്തിറക്കിയ അൺലോക്ക് ന് മാർഗനിർദേശങ്ങളുടെ കാലാവധി നവംബർ അവസാനം വരെ നീട്ടിയതായി കേന്ദ്രസർക്കാർ

സ്ഥിരീകരിച്ചു

വോട്ടെടുപ്പ് നാളെ

വിജിലൻസ് അഴിമതി വിരുദ്ധ ദേശീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം അഴിമതിയോട് തീർത്തും വിട്ടുവീഴ്ചയില്ലെന്ന മനോഭാവത്തോടെയാണ് രാജൃം മുന്നോട്ടു പോകുന്നതെന്നും അഴിമതിയും സാമ്പിത്തിക കുറ്റകൃത്യങ്ങളും മയക്കുമരുന്ന് ഇടപാടുകളും ഭീകര്യഭൂദ്ദിവും പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുകയാണെന്നും പ്രധാനമൃത്തി പറഞ്ഞു അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ എല്ലാവർക്കൂറ്റ് ്കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്നും ഇതിനായി വിവിധ ഏജൻസികൾ യോജിച്ചു പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സ്സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് വിജിലൻസ് വാരാചരണത്തോടനുബന്ധിച്ച് മൂന്നു ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് ജാഗരൂകമായ ഇന്ത്യ സമൃദ്ധമായ ഇന്ത്യ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന വാരാചരണം അടുത്തമാസം രണ്ട് വരെ നീണ്ടുനിൽക്കും സർദാർ വല്ലഭായി പട്ടേലിന്റെ ജന്മ വാർഷികത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് വിജിലൻസ് ബോധവൽക്കരണ വാരാചരണം സംഘടിപ്പിച്ചു വരുന്നത്

വഴിയോര കച്ചവടക്കാർക്കായുള്ള പി എം സ്വനിധി പദ്ധതിയുടെ ഉത്തർപ്രദേശിലെ ഗുണഭോക്താക്കളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം ജൻധൻ ഉജ്ജ്വല സ്വനിധി തുടങ്ങിയ വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികൾ കോവിഡ് മഹാമാരിക്കെതിരെ പോരാടാൻ ജനങ്ങളെ സഹായിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു ഏതു പ്രതികൂല സാഹചര്യത്തെയും നേരിടാന്റു രാജ്യത്തെ ജനങ്ങൾക്ക് സാധിക്കുമെന്ന് നാം ലോകത്തിന്റെ കാണിച്ചുകൊടുത്തതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വഴിയോരക്കച്ചവടക്കാർക്കായുള്ള ഇത്തരമൊരു പദ്ധതി സ്വാതന്ത്യാനന്തര ഇന്ത്യയിൽ ആദ്യമാണെന്നും സ്വനിധി പദ്ധതിയെക്കുമിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വൃക്തമാക്കി ഈ പദ്ധ്യതി തൊഴിലില്ലായ്മ മൂലം ജനങ്ങൾക്ക് സംസ്ഥാനത്തിനു പുറത്ത് തൊഴിൽ തേടി പോകേണ്ട സാഹചര്യം ഒഴിവാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ചടങ്ങിൽ ഉത്തർപ്രദേശിലെ മൂന്നു ലക്ഷത്തോളം പേർക്ക് വായ്പ വിതരണം ചെയ്തു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ക്രൂയ്സ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുടെ സ്ഥലപരമായ കൃത്യത ഉറപ്പുവരുത്തുന്നതിനായി അമേരിക്കയുടെ ജിയോസ്പേഷ്യൽ മാപ്പ് ഉപയോഗിക്കാൻ ഇന്ത്യയ്ക്ക് അനുമതി നൽകുന്നതാണ് ഈ കരാർ

രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാര്യ മന്ത്രി എസ്

എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയും പ്രതിരോധ് ഉസ്ക്കട്ടറി മാർക്ക് എസ്പെറും അമേരിക്കയെ പ്രതിനിധീകരിച്ചു ക്ഷ്കെടുത്തു

ഇ

എ കരാറിൽ ഒപ്പുവെക്കാനായത് സുപ്രധാന്റിനേട്ട്മാണെന്നും പ്രതിരോധ സുരക്ഷാ മേഖലകളിൽ ഇരുരാജ്യങ്ങളും യോജിച്ചു പ്രവർത്തിക്കുമെന്നും ചർച്ചകൾക്കുശേഷം നടത്തീയ സംയുക്ത മാധ്യമ പ്രസ്താവനയിൽ ശ്രീ

അതിർത്തി കടന്നുള്ള ഭീകരവാദം അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യൻ അതിർത്തിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ചർച്ചയിൽ അഭിപ്രായമുയർന്നതായി ശ്രീ

ഇന്ത്യയുടെ പരമാധികാരത്തിനും സ്വാതന്ത്ര്യത്തിനും നേരെയുള്ള ഭീഷണികൾ ചെറുക്കുന്നതിനായി അമേരിക്ക ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ അറിയിച്ചു

അള്ളുകൾ വലിയ രീതിയിൽ കൂട്ടം കൂടുന്നവ ഒഴികെയുള്ള എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും ഇതിനകം അനുമതി നൽകിയിട്ടുണ്ട് മെട്രോ ഉൾപ്പെടെയുള്ള ട്രെയിൻ യാത്രകളിലും ഷോപ്പിംഗ് മാളുകൾ ഹോട്ടലുകൾ എന്നിവിടങ്ങളിലും ആരാധനാ കേന്ദ്രങ്ങളിലും അടക്കം കാത്തുസൂക്ഷിക്കേണ്ട ആരോഗൃ സുരക്ഷാ മാർഗ്ഗനിർദ്ദേശങ്ങളും സർക്കാർ പുറത്തിറക്കിയിരുന്നു

തൃശൂർ എറണാകുളം മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്

ഒരു കോടിയിലേറെ രോഗികൾ നിലവിൽ ചികിത്സയിലുണ്ട്

പദ്ധതി പൂർത്തിയാകൂന്ന്തോടെ ബംഗ്ലാദേശിലേക്കുള്ള ഗതാഗതം കൂടുതൽ സുഗമ്മാകൂമെന്ന് ശ്രീ നിതിൻ ഗഡ്കരി പറഞ്ഞു

കോവിഡ് സാഹചര്യത്തിൽ വോട്ടർമാർ മാസ്ക് ധരിച്ചു മാത്രമേ ബൂത്തിലെത്താൻ പാടുള്ളൂവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എല്ലാവരെയും തെർമൽ സ്കാനിങ്ങിന് വിധേയരാക്കും വോട്ടർമാർക്ക് സാനിറ്റൈസർ ലഭൃമാക്കുകയും പോളിങ് ബൂത്തുകൾ അണുവിമുക്തമാക്കുകയും ചെയ്യും

രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ്

കേസ് അന്വേഷണത്തിൽ കോടതിയുടെ നിരീക്ഷണം ആവശ്യപ്പെട്ട് നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് കോടതി തീരുമാനം

നിലവിൽ കേസ് അന്വേഷിക്കുന്ന സി ബി ഐ ക്ക് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകാവുന്നതാണ്

ദിനം ദിനാചാരണത്തിന്റെ ഭാഗമായി ഉദ്ധംപൂരിലെ ധ്രുവ ശഹീദ് സ്മാരകത്തിൽ നോർതേൺ കമാൻഡ് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ സി ബൻസി പൊന്നപ്പ പുഷ്പചക്രം അർപ്പിച്ചു ഇൻഫൻട്രി ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേനാംഗങ്ങൾക്ക് ആശംസകൾ നേർന്നു

എ

എ

റഷ്യൻ പാർലമെന്റ് അധ്യക്ഷൻ വ്യാച്ചാസ്താവ് വോളഡിൻ സമ്മേളനത്തിന് അധൃക്ഷത വഹിക്കും